മുസ്തീങ്ങളിലെ ബഹു ഭാര്യാത്വവും നിക്കാഹ് ഹലാലയും ചോദ്യം ചെയ്യുന്ന ഹർജിയിൽ സുപ്രീംകോടതി കേന്ദ്രത്തിന്റെ പ്രതികരണം ആരാഞ്ഞു

ലോക ജൂനിയർ സ്കാഷ് ചാമ്പ്യൻഷിപ്പിന്റെ പുരുഷ വിഭാഗം മത്സരം ഇന്ന് ചെന്നൈയിൽ ആരംഭിക്കും

പ്രതിരോധം വ്യാപാരം കൃഷി തുകൽ ഉത്പന്നങ്ങൾ പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലകളിലാണ് കരാറുകളിൽ ഒപ്പുവച്ചത്

എസ് ഡോളർ നൽകാനും ഇന്ത്യ തീരുമാനിച്ചു ഉഭയകക്ഷി ബന്ധം ശക്തമാക്കാനുള്ള നടപടികളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു റുവാണ്ടയിൽ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയം ആരംഭിക്കുമെന്നും ഇത് ഇരു ഗവൺമെന്റുകളും തമ്മിൽ ബന്ധപ്പെടാന്തും നയതന്ത്ര പാസ്പോർട്ട് വിസ സൌകര്യങ്ങൾക്കും ഉപകാരപ്പിദ്മാ്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംയുക്ത വാർത്താ സൃമ്മേളനത്തിൽ അറിയിച്ചു റുവാണ്ടയുടെ സാമ്പത്തിക വ്വിക്സന് പ്രയാണത്തിൽ ഒപ്പം നിൽക്കാൻ കഴിയുന്നത് ഇന്ത്യയ്ക്ക് അഭിമാനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ വ്ളരെക്കാലമായി നിലനിൽക്കുന്ന സൌഹൃദ സഹകരണ ബന്ധത്തിൽ നരേന്ദ്രമോദിയുടെ സന്ദർശനം നാഴികക്കല്ലാണെന്ന് റുവാണ്ടൻ പ്രസിഡന്റ് പ്രതികരിച്ചു പ്രധാനമന്ത്രിയുടെ ആഫ്രിക്കൻ സന്ദർശനത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി നവനീത

നരേന്ദ്രമോദി പിന്നീട് ഇന്ത്യൻ സമൂഹവുമായി ആശയവിനീമയം നടത്തി ഇന്ത്യക്കാർ ലോകം മുഴുവൻ തങ്ങളുടെ സാന്നിദ്ധ്യം അറിയിക്കുകയാണെന്നും അവരാണ് അംബാസഡർമാരെന്നും പ്രധാനമന്ത്രി പറഞ്ഞു റുവാണ്ടയുടെ വികസനത്തിൽ ഇന്ത്യൻ ജനങ്ങൾ പങ്കാളികളാകുന്നതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

കിഴക്കൻ ആഫ്രിക്കയുടെ പ്രധാന കവാടമായ റുവാണ്ടയിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനം ചരിത്രപരമാണ്

പ്രധാനമന്ത്രി റുവാണ്ടയിൽ നിന്നും ഉഗാണ്ടയിലേക്കും തുടർന്ന് പത്താമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാന്റായി ദ്ദ്ക്ഷിണാഫ്രിക്കയിലേക്കും പോകും

കേന്ദ്രത്തിന് നോട്ടീസ് അയച്ചശേഷം ചീഫ് ജസ്റ്റിസ് ദീപക് മിക്ര അധ്യക്ഷനായ ബഞ്ച് സമാന കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഭരണഘടന ബഞ്ചിന് കേസ് കൈമാറി ഭരണഘടയിലെ ചില അനുഛേദങ്ങൾക്ക് എതിരായതിനാൽ ബഹുഭാര്യാത്ഥം നിക്കാഹ് ഹലാല എന്നിവ ഭരണഘടന വിരുദ്ധ്യായി പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടാണ് ഹർജി കോടതി മുഖാന്തിരമല്ലാത്ത തലാഖ് നിക്കാഹ് ഹലാല ബഹുഭാര്യാത്ഥം എന്നിവ ഇന്തൃൻ ശിക്ഷ നിയമം അനുസരിച്ച് കുറ്റകരമാണെന്ന് പ്രഖ്യാപിക്കണമെന്നും ഹർജി ആവശ്യപ്പെടുന്നു

ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട ശേഷവും എം പി മാർ എം എൽ

ബി ഐ അറസ്റ്റ് ചെയ്തു ഇവർ ലഖ്നൌവിലെ ഛാർബാഗ് റെയിൽവേസ്റ്റേഷ്ട്രിൽ പരിശീലനം നൽകുന്നതായും ആളുകളെ കബളിപ്പിച്ചതായും കണ്ടെത്തി റെയിൽവേയിലും മറ്റ് ഗവൺമെന്റ് കാര്യാലയങ്ങളിലും ജോലി വാഗ്ദാനം ചെയ്ത ഇവർ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് മൂന്ന് മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ കൈക്കലാക്കി ഡൽഹി ലഖ്നൌ ജയ്പൂർ സോനെപട്ട് ആഗ്ര തുടങ്ങിയ ഇടങ്ങളിലായി നടന്ന അന്വേഷണത്തിൽ നിരവധി രേഖകളും മൊബൈൽ ഫോണുകളും ബാങ്ക് കാർഡുകളും പണവും കണ്ടെടുക്കുകയുണ്ടായി

വിവിധ കലാപരിപാടികളും ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് നാളെ ഓപ്പറേഷൻ വിജയ് വിവരിക്കുന്ന പ്രദർശനം നടക്കും വൃാഴാഴ്ചയാണ് പുഷ്പചക്ര സമർപ്പണം

ഇവരുടെ സുരക്ഷയ്ക്കായി ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസും കുമാവോൺ വികാസ് മണ്ഡലും പ്രവർത്തിക്കുന്നതായി മന്ത്രി ടിറ്ററിൽ കുറിച്ചു ടിബറ്റിലെ കൈലാസ് മാനസരോവർ യാത്ര കഴിഞ്ഞു മടങ്ങവേ നൂറുകണക്കിന് ഇന്ത്യൻ തീർത്ഥാടകരാണ് ഈ മാസ്ക് ആദ്യം നേപ്പാളിലെ പർവതങ്ങളിൽ കൂടുങ്ങിയത് ഇവരെ വിമാന്മാർഗ്ം സുരക്ഷിത സ്ഥലങ്ങളിലേയ്ക്ക് മാറ്റിയിരുന്നു

റോഡ് ഗതാഗത ഹൈവേ വകുപ്പ് മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ആണ് ബിൽ ഇന്നലെ സഭയ്ക്കു മുന്നിൽ വച്ചത് റോഡ് വാഹന സുരക്ഷിതത്വത്തിനും ഗതാഗത സൌകര്യത്തിനും ഊന്നൽ നൽകുന്നുവെന്നും ലേണേഴ്സ് ലൈസൻസിന് ഓൺലൈനായി അപേക്ഷിക്കാൻ ജനങ്ങൾക്ക് അവസരം ഒരുക്കുമെന്നും ബില്ലിന്മേലുള്ള ചർച്ചയിൽ മന്ത്രി അറിയിച്ചു

ഹരിപ്രസാദ് ആരോപിച്ചു

ജെ പി നേതാവ് സഹസ്രബുദ്ധ വർദ്ധിച്ചുവരുന്ന റോഡപകടങ്ങൾ കുറച്ച് റോഡ് സുരക്ഷ ഭേദഗതിയിൽ ഉറപ്പുവരുത്തുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് അറിയിച്ചു

പ്രധാന രാഷ്ട്രീയ കക്ഷികളായ പിഎംഎൽ എൻ പാകിസ്ഥാൻ തെഹ്രിക് ഇൻസാഫ് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി തുടങ്ങിയവർ അവസാനവട്ട പ്രചാരണത്തിൽ ഷബാസ് ഷെറീഫ് ഇമ്രാൻഖാൻ ബിലാവൽ ഭൂട്ടോ തുടങ്ങിയ നേതാക്കളുടെ സാന്നിദ്ധ്യം അവസാനഘട്ട പ്രചരണത്തിൽ അണികൾക്ക് ആവേശം പകർന്നു

കേസിൽ തീവ്രവാദികളുടെ ചാവേർ ആക്രമണ പരമ്പരകളാണ് പ്രചരണത്തിന്റെ ശോഭ കുറക്കാൻ മറ്റൊരു കാരണം

വ്യക്തിഗത മൽസരങ്ങളിൽ മുന്നിട്ട് നിന്ന് ഈജിപ്റ്റ് ഗ്രൂപ്പ് എ യിലാണ്

ജല ആംബുലൻസിന്റെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി ജി

കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കക്കെടുതിക്ക് പരമാവധി തണലേകാൻ ഗവൺമെന്റ് എല്ലാ വിധത്തിലും ശ്രമിച്ചുവരുന്നതായി മന്ത്രി പറഞ്ഞു വാട്ടർ ആംമ്പുല്ൻസ് വരും ദിവസങ്ങളിൽ മുന്നെണ്ണം കൂടി സജ്ജമാക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി